രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ

കാശ്മീരി പണ്ഡിറ്റുകള്ളൂ ജന്മനാട്ടിൽ തിരിച്ചെത്തിക്കുവാൻ ബി ജെ പി പ്രതിജ്ഞാ ബദ്ധമാണെന്ന് പ്ര്യാന്മന്ത്രി നരേന്ദ്രമോദി

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തെറ്റായ പ്രവർത്തനം ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി

അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ബി

അധ്യക്ഷ മായാവതി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കുവേണ്ടി പ്രചാരണത്തിനിറങ്ങി ഉച്ചതിരിഞ്ഞ് ഉത്തർപ്രദേശിലെ അലിഗഡിൽ സംഘടിപ്പിച്ച വിജയ് സങ്കൽപ് റാലിയെ അഭിസംബോധന ചെയ്യവെ എല്ലാ ജനവിഭാഗത്തിന്റെയും വികസനത്തിന് എൻ

ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഗവൺമെന്റ് പദ്ധതികളുടെ നേട്ടങ്ങൾ യാതൊരു വിവേചനവും കൂടാതെ എല്ലാവർക്കും ലഭ്യമാക്കു മെന്നും ശ്രീ

ദാദാസാഹിബ് ഡോ ബീം റാവു അംബേദ്ക്കർ മികച്ച സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനും സാമൂഹൃ പരിഷ്ക്കർത്താവുമായിരുന്നു എന്ന് ശ്രീ

കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അസമിലെ സിൽക്ചാറിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു

യെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കത്വയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കശ്മീരി പണ്ഡിറ്റു കളുടെ പലായനത്തിന് കാരണം കോൺഗ്രസ് നയമായിരുന്നു വെന്ന് ശ്രീ

ഡി

നാഷണൽ കോൺഫറ ൻസ് കോൺഗ്രസ് എന്നീ പാർട്ടികളുടെ ഇന്ത്യാവിരുദ്ധത അവരുടെ പ്രകടന പത്രികയിലൂടെ വൃക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബ വാഴ്ച ജനാധിപത്യത്തിന് എതിരാണെന്ന് ഡോ

അംബേദ്ക്കറി നോടുള്ള ആദരസൂചനകമായി കുടുംബ വാഴ്ചക്കെതിരെ വോട്ട് ചെയ്യണമെന്നും ശ്രീ

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണമെന്ന് ് ആന്ധ്രപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്ര ബാബു നായിഡു പ്പിട്ടുണ്ടു

ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനത്തെകുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നതെന്ന് കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി പറഞ്ഞു പരിശോധനയില്ലാതെ നിരവധി സമ്മതിദായകരെയാണ് ഒഴിവാക്കിയതെന്നും സിംഗ്വി ആരോപിച്ചു ക്രമക്കേടുകൾക്കെ തിരെ പ്രതിപക്ഷ കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ശ്രീ

ജെ

ആറ് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പാർട്ടി ഇന്ന് പുറത്തുവിട്ടത് അരവിന്ദ് ശർമ്മ രോഹ്തക് മണ്ഡലത്തിലും ബ്രിജേന്ദ്ര സിംഗ് ഹരിയാനയിലെ ഹിസ്കാർ മണ്ഡലത്തിലും ജനവിധി തേടും മധ്യപ്രദേശിലെ ഖജരേഹോ പാർലമെന്റ് മണ്ഡലത്തിൽ ബിഷ്ണുദത്ത് ശർമയാണ് ബി

ആദ്യഘട്ടത്തിൽ വ്യാഴാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഈ പോളിംഗ് ബൂത്തുകളിൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു

ഭരണകക്ഷിയായ ബി ജെ

തെരഞ്ഞെടുപ്പി നുവേണ്ടി വൻതുക ചെലവഴിക്കുകയാണെന്നും ഇതെത്രയാണെന്ന് പൊതു ജനത്തെ അറിയിക്കാൻ ബി ജെ

തയ്യാറാകണമെന്നും കോൺ ഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു റാഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ മിനിട്ട്സ് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

എം കിസാൻ ഗ്രാമീണ വൈദ്യുതീകരണം തുടങ്ങിയ പദ്ധതികൾ വൻ വിജയം കൈവരിച്ചതായി നീതി ആയോഗ് മുൻ വൈസ് ചെയർ മാൻ അരവിന്ദ് പനഗരിയ പറഞ്ഞു രാജ്യത്തുനിന്നും അഴിമതി തുടച്ചുനീക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് വിജയിച്ചുവെന്നും അദ്ദേഹം പി

ഐ

ചരക്ക് സേവന നികുതി പാപ്പരത്ത നിയമം സഹായങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൌണ്ടിൽ എത്തിക്കുന്ന പദ്ധതി എന്നിവ സാമ്പത്തിക പരിഷ്ക്കരണത്തിന് വഴിതെളിച്ചെന്നും അദ്ദേഹം പറഞ്ഞു

ജയിഷേ ഇ മുഹമ്മദ് ഭീകര സംഘടനയും സി

ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ റേഷി ആണെന്ന് ് എൻ ഐ

ഭീകരസംഘടനയുടെ മുഖ്യൂ കമാൻഡർ നൂർ മുഹമ്മദുമായി ഇയാൾക്ക് അടുത്ത ബ്ലസ്സമുണ്ടെന്നും എൻ ഐ

വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി തവർചന്ദ് ഗലോട്ട് സാമൂഹിക ശാക്തീകരണ വകുപ്പ് സഹമന്ത്രിമാരായ രാംദാസ് അത്വാലെ വിജയ് സംബലാ പാർല മെന്ററികാര്യ സഹമന്ത്രി വിജയ് ഗോയൽ തുടങ്ങിയ നേതാക്കൾ അംബേദ്ക്കർ സ്മരണ പുതുക്കി പാർലമെന്റ് മന്ദിരത്തിന് ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള അംബേദ്ക്കറുടെ ഛായാ ചിത്രത്തിൽ പ്രധാന മന്ത്രിയും ലോക്സഭാ സ്പീക്കറും പുഷ്പ്പാർച്ചന നടത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയ ധീരദേശാഭിമാനിയും അധകൃത വർഗ്ഗത്തിന്റെ അവകാശ സംരക്ഷണത്തിനുവേണ്ടി യത്നിച്ച മഹത്വൃക്തിയുമായിരുന്നു ഡോക്ടർ ബി

സാമൂഹിക പരിഷ്ക്കർത്താവും നിയമജ്ഞനും പണ്ഡിതനുമാ യിരുന്ന അദ്ദേഹം സമൂഹത്തിലെ അസമത്വങ്ങളും വിവേചനങ്ങളും തുടച്ചു മാറ്റാൻ യത്നിച്ച മഹാനായിരുന്നു വെന്ന് ഉപരാഷ്ട്രപതി എം

സാമൂഹിക നീതിയുടെ സന്ദേശ വാഹകനും ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശിൽപ്പിയുമായിരുന്നു ബി

അംബേദ്ക്കറെന്ന് പ്രധാനമുന്തി ്നരേന്ദ്രമോദി ടിറ്ററിൽ കുറിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീരദേശസേന ഉടൻ എത്തി ബോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞു

പിന്നീട് ഇവരെ തീരദേശസേന രക്ഷപ്പെടുത്തി പോർബന്ദർ തീരത്ത് എത്തിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

തന്റെ രാജി തീരുമാനം പാർട്ടി അധ്യക്ഷൻ അമീത് ഷായെ അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

ടോസ് നേടിയ ചെന്നൈ കൊൽക്കത്തയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു

രാത്രി എട്ട് മണിക്ക് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ സൺറൈ സേഴ്സ് ഹൈദ്രബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

കെ പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി മുഖ്യ പരിശീലകൻ രവി ശാസ്ത്രി എന്നിവർ ഉൾപ്പെട്ട അഞ്ചംഗ ദേശീയ സെലക്ഷൻ കമ്മറ്റിയാണ് ടീമിനെ പ്രഖ്യാപിക്കുക

ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് രാവിലെ തന്നെ ഓശാന പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു കുരുത്തോലകളുമേന്തി ചില സ്ഥല ങ്ങളിൽ നഗരപ്രദക്ഷിണം നടത്തിയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും പീഢാനുഭവവും ഉൾപ്പെടുന്ന വിശുദ്ധ വാരാചരണ ത്തിനും ഇന്ന് തുടക്കമായി